ഇന്ന് ദേശീയ ദുഖാചരണം സംസ്കാരം പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകീട്ട് ഗോവയിലെ മിരാമറിൽ

പ്രചാരണത്തിന് ഇനി ചൂടേറും

ഡി എഫ് സ്ഥാനാർഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും

ജെപി പട്ടിക ഇന്ന് വൈകീട്ടോ നാളെയോ ഇടതു മുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണ റായി വിജയൻ പത്തനംതിട്ടയിൽ വിലയിരുത്തും

സിക്ക് ങ്ങ ൽ ഗോവ മുഖൃമന്ത്രിയും മുൻ രാജൃരക്ഷാ മന്ത്രിയുമായ മനോഹർ പരീക്കർ അന്തരിച്ചു

ഒരു വർഷത്തോളമായി പാൻക്രിയാസിലെ അർബുദ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ നില കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ വഷളാവുകയായിരുന്നു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി അധ്യക്ഷൻ അമിത്ഷായും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ പ്രീക്കറുടെ അന്തൃത്തിൽ അനുശോചനം അറിയിച്ചു നിതിൻഗുഡ്കരി നിർമല സീതാരാമൻ പ്രകാശ് ജാവ്ദേക്കർ തുട്ടങ്ങിയ കേന്ദ്രമന്ത്രിമാരും അനുശോചിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി സംസ്ഥാ നങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഗവർണർമാർ തുടങ്ങിയവരും അനു ശോചനം അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ദേശീയ ദുഖാചരണം പ്രഖ്യാപിച്ചു ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും അദ്ദേഹത്തിന്റെ അന്തൃ ത്തിൽ അനുശോചിക്കാൻ രാവിലെ കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരും പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകീട്ട് അഞ്ചിന് മിരാമറിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം

വൈകീട്ട് നാല് മണിയോടെ വിലാപ യാത്രയായി മിരാമറിലേക്ക് കൊണ്ടു പോകും നരേന്ദ്രമോദി ഗവൺമെന്റിൽ മൂന്ന് വർഷത്തോളം രാജ്യരക്ഷാമ ന്ത്രിയായിരുന്നു മനോഹർ പരീക്കർ നാല് തവണ ഗോവ മുഖ്യമ ന്ത്രിയായി

എസ് എസ് പ്രചാരകായാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് ബോംബെ ഐടിയിൽ നിന്ന് മെറ്റലർജി ബിരുദം നേടിയ ശേഷവും അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിൽ തുടർന്നു പാക് അധീന കശ്മീരിൽ ഇന്ത്യൻ സേനയുടെ മിന്നലാക്രമണത്തിന് പിന്നിലെ ആസൂത്രകൻ മനോഹർ പരീക്കറായിരുന്നു റഫേൽ യുദ്ധ വിമാന ഉടമ്പടിയിൽ ഒപ്പിട്ടതും അദ്ദേഹമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം വ്യോമസേനയിൽ ഉൾപെടു ത്തിയതിന് പിന്നിലും അദ്ദേഹത്തിന്റെ പരിശ്രമമുണ്ടായിരുന്നു ഗോവയിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ബിജെപി നിയ മസഭാ കക്ഷി യോഗം രാവിലെ ചേരും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി യോഗത്തിൽ പങ്കെടുക്കും ബിജെപി ഗ്വൺമെന്റിനെ പിന്തുണ ക്കുന്ന മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി ഗോവ ഫോർവേഡ് പാർട്ടി കക്ഷിരഹിതർ തുടങ്ങിയവരെയും അദ്ദേഹം കാണും പുതിയ മുഖ്യമന്ത്രി രാവിലെ സ്ഥാനമേൽക്കുമെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ സ്ഥാനാർഥി പ്രഖ്യാ പനം അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കെ സംസ്ഥാനത്ത് എൽ ഡി എഫ് യു

എഫ് ബി ജെ പി മുന്നണികൾ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി സ്ഥാനാർഥികളെ മുൻകൂട്ടി തീരുമാനിച്ച എൽ ഡി എഫ് എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിൽ മുന്നിലാ ണ് മണ്ഡലം കൺവെൻഷനുകളും സ്ഥാനാർഥി പരൃടത്തിന്റെ ഒന്നാം ഘട്ടവും അവർ പൂർത്തിയാക്കി വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങ ളിലെ കോൺഗ്രസ് സ്ഥാനാർഥികളെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും കേര ളത്തിലെ നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം നാല് മണ്ഡലങ്ങളിലും സ്ഥാനാർഥികളുടെ കാര്യത്തിൽ ഗൌരവമായ തർക്കങ്ങൾ ഒന്നും നിലവിലില്ലെന്നും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവുമെന്നും കെ

സി സി പ്രസിഡന്റ് മുല്ല പ്പള്ളി രാമചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു സ്ഥാനാർഥികളുടെ കാര്യത്തിൽ സമവായം ഉണ്ടാക്കുന്നതിന് മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം മുകുൾ വാസ്നിക് കെ സി വേണുഗോപാൽ എന്നിവരുമായി ചർച്ച നട ത്തിയ ശേഷം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെ ന്നാണ് റിപ്പോർട്ട് ബിജെപി സ്ഥാനാർഥി പട്ടികയും ഇന്ന് പ്രഖ്യാപിച്ചേക്കും വൈകീട്ട് പാർട്ടി ആസ്ഥാനത്ത് ചേരുന്നം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അംഗീകരിച്ച ശേഷമായിരിക്കും പ്രഖ്യാപനം എന്നാൽ മനോഹർ പരീക്കറിന്റെ നിര്യാണം മൂലം യോഗം മാറ്റി വെക്കേണ്ടിവന്നാൽ തീരുമാനം നാളത്തേക്കു നീളും പത്തനംതിട്ട യിൽ പി എസ് ശ്രീധരൻ പിള്ളയുടെയും കെ സുരേന്ദ്രന്റെയും പേരു കളാണ് സജീവ പരിഗണനയിൽ എന്നാണ് റിപ്പോർട്ട്

ഡി ജെ എസിന് നൽകിയ തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരി ച്ചേക്കുമെന്നാണ് സൂചന ഇടതുമുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിൽ എത്തും അദ്ദേഹത്തിന്റെ സാന്നിധൃത്തിൽ ചേരുന്ന യോഗത്തിൽ പാർല മെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളും സിപിഐഎം ഏരിയ ഭാരവാഹികളും പങ്കെടുക്കും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർഥി നിർണയം പോലും പൂർത്തിയാ ക്കാൻ കഴിയാത്ത യുഡിഎഫ് രാഷ്ട്രീയമായും സംഘടനാപര മായും തകർന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു സ്ഥാനാർഥി നിർണയം കോൺഗ്രസിൽ കലാപമുണ്ടാക്കിയെന്നും സംസ്ഥാനതലത്തിൽ അവർക്ക് നേതൃത്വം ഇല്ലാതായെന്നും കോടിയേരി തിരുവനന്തപു രത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു യുഡിഎഫ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ രാവിലെ മുസ്തിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാ ടനം ചെയ്യും കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിലാണ് പരിപാ ടി എറണാകുളത്തെ യുഡിഎഫ് സ്ഥാനാർഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും സിറ്റിങ് എം പി യുമായ പ്രൊഫ

ഇന്നലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി ഡൽഹിയിൽ നടത്തിയ കൂടി ക്കാഴ്ചക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കോട്ടയത്തെ യുഡിഎഫ് സ്ഥാനാർഥിക്ക് വേണ്ടി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തുമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി

കോട്ടയത്ത് മറ്റന്നാളത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പങ്കെടുക്കുമെന്ന് പി

പശ്ചിമ ബംഗാളിൽ സി

എമ്മുമായി നടത്തി വന്ന സീറ്റ് വിഭജന ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് പിൻമാറി സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് കോൺഗ്രസിന്റെ പശ്ചിമ ബംഗാൾ ഘടകം അറിയിച്ചു ആഴ്ചകളോളം കോൺഗ്രസും സി

എമ്മും സീറ്റ് ധാരണയ്ക്ക് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇരു പാർട്ടികളും വഴിപിരിയാൻ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടി ഇന്ന് തുടങ്ങും

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ കിരീടം ബെംഗലൂരു എഫ്സിക്ക് എക്സ്ട്രാ ടൈമിലെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് അവർ ഗോവ എഫ്സിയെ പരാജയപ്പെടുത്തിയത് മുംബൈയിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോളടിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് മത്സരം അധിക സമയത്തേക്ക് നീണ്ടത് രാഹുൽ ഭേഗേ യുടെ ഗോളിലാണ് ബെഗുലൂരുവിന്റെ വിജയം ഏഷ്യൻ യൂത്ത് അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് രണ്ടാംസ്ഥാനം

പട്യാലയിൽ ഫെഡറേഷൻ കപ് അത്ലറ്റിക്സിലെ വനിതാ പോൾവാൾട്ടിൽ കേരളത്തിന്റെ കൃഷ്ണരചന് മീറ്റ് റെക്കോർഡോടെ സ്വർണം ഈയിനത്തിൽ കേരളത്തിന്റെ തന്നെ മരിയ ജയ്സൺ വെള്ളിയും നേടി നാവിക സേനയുടെ യുദ്ധ തയാറെടുപ്പ് പരിശീലന പരിപാടിയുടെ പുരോഗതി വിലയിരുത്താൻ നാവിക സേനാ കമാൻഡർമാരുടെ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും നാവിക സേനാ മേധാവി അഡ്മിറൽ സുനിൽ ലാംബയുടെ അധ്യക്ഷതയിലാണ് യോഗം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്നു

ചൂടിനെ പ്രതിരോധിക്കാൻ ആരോഗ്യ വകുപ്പും ദുരന്ത നിവാരണ അതോറ്റിറ്റിയും ബോധവത്കരണ പരിപാടികൾ നടത്തുന്നുണ്ട് കണ്ണൂർ അഴിക്കലിലെ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിൽ പൊളിക്കാനായി കൊണ്ടുവന്ന കപ്പലിന് തീപിടിച്ചു ഹൊറൈസൺ ഫിഷറീസ് എന്ന കപ്പലിനാണ് ഇന്നലെ രാത്രി തീപിടിച്ചത് പുലർച്ചെ യോടെ തീ പൂർണമായി അണച്ചു

സിഘോഷ് ദേശീയ മനു ഷ്യാവകാശ കമ്മിഷൻ അംഗമായി പ്രവർത്തിച്ചു വരികയാണ്

എഫ്

കണ്ണൂർ മുണ്ടയാട് ഇന്നലെ പുലർച്ചെ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾകൂടി മരിച്ചു

അപകടത്തിൽ ഇന്നലെ ഒരാൾ മരിച്ചിരുന്നു കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കുന്നതിനിടെ കർണാടക സ്വദേശി മരിച്ചു

തിരയിൽപ്പെട്ട കൂടെയു ണ്ടായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനിടെയായിരുന്നു അപ കടം ന്യൂസിലാൻഡിലെ ഭീകരാക്രമണത്തിൽ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി അൻസി ബാവയുടെ മൃതദേഹം ഈ ആഴ്ച നാട്ടിലെ ത്തിക്കും

ന്യൂസിലാൻഡ് പൊലീസ് നടപടി കൾക്ക് ശേഷം മൃതദേഹം വിട്ടുനൽകും പ്രവാസി ഇന്ത്യക്കാർക്ക് ആധാർ നിർബന്ധമില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ പി

പല ധനകാര്യ സ്ഥാപന ങ്ങളും വിദേശ ഇന്തൃക്കാരോട് ബാങ്ക് അക്കൌണ്ട് ആധാറുമായി ബന്ധ പ്പിക്കണ മെന്ന് നിർബന്ധിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ കലക്ടർ ഇക്കാര്യം അറിയിച്ചത്